അന്താരാഷ്ട്ര മ്മ്ത്സ്വാതന്ത്ര്യം സംബന്ധിച്ച അമേരിക്കൻ ക്ലൂമ്മീഷൻ ഡൽഹിയിലെ അക്രമ സംഭവങ്ങളെക്ക്ുറിച്ച് നടത്തിയ പരാമർശങ്ങൾ തെറ്റിദ്ധാരണാജനകമെന്ന്ഇന്ത്യ

അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്കെതിരെ നടപടി എടുക്കാത്ത സി ബി എസ് ഇ നിലപാടിന് ഹൈക്കോടതിയുടെ വിമർശനം

രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റിന് ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു രാജ്ഘട്ടും അദ്ദേഹം സന്ദർശിച്ചു നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരമാണ് യു വിൻ മിന്റ് ന്യൂഡൽഹിയിൽ എത്തിയത്

രാഷ്ട്രപതിയുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും

ജയശങ്കർ ഇന്നലെ ന്യൂസിലന്റ് വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വാണിജ്യം പ്രതിരോധം സുരക്ഷ തുടങ്ങിയ രംഗങ്ങളിൽ കൂടുതൽ ആഴത്തിൽ സഹകരിക്കാൻ കൂടിക്കാഴ്ച്ചയിൽ ധാരണയായി

നില്ളെ വരെ നീളുന്ന സന്ദർശനത്തിൽ ന്യൂസിലന്റ് വാണിജ്യമന്ത്രിപ്പ് ഡേവിഡ് പാർക്കറും ബിസിനസ് പ്രതിനിധിതല സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്

യു എസ് സി ഐ ആർ എഫും ചില വൃക്തികളും നടത്തുന്ന പരാമർശങ്ങൾ സംഭവത്തെ രാഷ്ട്രീയവത്കരിക്കുന്നതാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ അറിയിച്ചു അക്രമങ്ങൾ തടയുന്നതിനും സാധാരണ അവസ്ഥ തിരികെ കൊണ്ടുവരുന്നതിനും രാജ്യത്തെ ക്രമസമാധാന സംവിധാനങ്ങൾ നിരന്തരം പരിശ്രമിക്കുകയാണ് സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി പ്രധാനമന്ത്രി പൊതു അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട് രൂക്ഷമായ സ്ഥിതിഗതികൾക്കിടയിൽ ഉത്തരവാദിത്തരഹിതമായ പ്രസ്താവനകൾ നടത്തരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി

അക്രമവുമായി ബന്ധുപ്പെട്ട് നൂറിലധികം പേരെ അറസ്റ്റ് ചെയ്തു

പ്രശ്ന ബാധിത മേഖലയിലെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് പൊലീസും സുരക്ഷാ ഏജൻസികളും പ്രയത്നിച്ചുവരികയാണെന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു ശാന്തിയും സൌഹാർദവും രാജ്യത്തിന്റെ മുഖമുദ്രയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്ത് സമാധാനവും സൌഹാർദവും നിലനിർത്താൻ ആഹ്വാനം ചെയ്തു അക്രമങ്ങൾ ഉണ്ടായ വടക്കു കിഴക്കൻ ഡൽഹിയിലെ പ്രദേശങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സന്ദർശിച്ചു മൌജ്പൂർ മേഖലയിലെ സുരക്ഷാ സ്ഥിതി വിലയിരുത്തിയ അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചു പിന്നീട് ആഭ്യന്തരമന്ത്രി അമിത് ഷായെ സ്ഥിതിഗതികൾ ധരിപ്പിച്ച ശ്രീ

ഇന്നലെ പുതുതായി അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്രശ്നബാധിത്രു മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും സ്ത്ർഹി പോലീസ് വക്താവ് എം

ഐ

മുരളീധറിന്റെ സ്ഥലംമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ ആരോപണം കേന്ദ്ര സർക്കാർ നിഷേധിച്ചു ഡൽഹി അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ അദ്ദേഹമായിരുന്നു പരിഗണിച്ചിരുന്നത് സ്ഥലംമാറ്റം സാധാരണ നടപടിയാണെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായുള്ള കൊളിജീയത്തിന്റെ ശുപാർശ പ്രകാരമാണ് ഇതെന്നും കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു ഒരു സാധാരണ സ്ഥലംമാറ്റത്തെ രാഷ്ട്രീയവൽക്കരിച്ചതിലൂടെ നിയമ സംവിധാനത്തോടുള്ള കോൺഗ്രസിന്റെ നിഷേധാത്മക നിലപാടാണ് വെളിവാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

വരുന്ന ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരും

ബി എസ് ഇ

ബി എസ് ഇ പരീക്ഷകൾ ഇതിനകം ആരംഭിച്ചുകഴിഞ്ഞെങ്കിലും പ്രധാന വിഷയങ്ങളുടെ പരീക്ഷ ഇന്നു മുതലാണ് നടക്കുക

ബി എസ്

തോപ്പുംപടി അരൂജ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പത്താംക്ലാസ് പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യത്തിൽ സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി

ബി എസ്

വിശദമായ സത്യവാങ്മൂലം നൽകാൻ സി ബി എസ്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

വോയ്സ് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയ ജപ്പാൻ അധികൃതർക്ക് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ ട്വിറ്ററിൽ നന്ദി രേഖപ്പെടുത്തി

ഇവർ ജപ്പാനിൽ ചികിത്സയിൽ തുടരുകയാണ് ടോക്കിയോയിലെ ഇന്ത്യൻ നയതന്ത്രകാര്യാലയം ഇവരുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ അന്വേഷിക്കുന്നുണ്ട്

ബംഗ്ലാദേശ് മ്യാൻമാർ മാൽദീവ്സ് ചൈന ദക്ഷിണാഫ്രിക്ക അമേരിക്ക മഡഗാസ്കർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ വുഹാനിലെ ഇന്ത്യക്കാരെ തിരികെ എത്ത്രിക്കുന്നതിനായി ഇന്ത്യ ഇന്നലെ പ്രത്യേക വിമാനം അയച്ചിരുണ്ടു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

കൊറോണ സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റ് വിസക്കാർക്കും വിലക്കുണ്ട് സൌദിയിൽ കൊറോണ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുൻകരുതൽ എന്ന നിലക്കാണ് നടപടി സൌദി അറേബ്യയുടെ തീരുമാനത്തെ തുടർന്ന് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഉംറ യാത്രയ്ക്കായി എത്തിയ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് തിരിച്ചിറക്കി

ബാങ്കുകൾക്ക് ഉപഭോക്താക്കളുടെ വൃക്തിവിവരങ്ങളും മറ്റു രേഖകളും ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ ഒരു ചടങ്ങിനെ അഭിസംബോധന ചെയ്യവെ അവർ പറഞ്ഞു

പൊതുമേഖലാ ബാങ്കുകളിലെ നിരവധി ബ്രാഞ്ചുതല ഉദ്യോഗസ്ഥർക്ക് ഗവൺമെന്റ് പദ്ധതികളെ സംബന്ധിച്ച് വേണ്ടത്ര അറിവില്ലെന്നും അവർ പറഞ്ഞു

ഡൽഹിയിൽ ഇന്നലെ നടന്ന ദേശീയ എം

ഇ

ഈ സ്ഥാപനങ്ങളിലൂടെ മേഖലയ്ക്കാവശ്യമായ എല്ലാ സഹായവും ബാങ്കുകൾ നൽകുന്നതായി ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

സവാളയ്ക്ക് ആഭ്യന്തരവില കുതിച്ചുയർന്നപ്പോഴാണ് ആറ് മാസം മുൻപ് കയറ്റുമതി നിരോധനം കൊണ്ടുവന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതിയാണ് തീരുമാനമെടുത്തത് കേന്ദ്ര ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാൻ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പ്പാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ക്യാബിനറ്റ് സെക്രട്ടറി ്യര്ക്ക് മൌബ തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു

മെൽബണിൽ നടന്ന ഗ്രൂപ്പ് എ യിലെ ഒമ്പതാമത്തെ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലന്റ് ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു

വനിതാ വിഭാഗത്തിൽ റോഹ്ത്തക് മഹർഷി ദയാനന്ദ് സർവകലാശാലയിലെ പ്രിയങ്ക തക്രനാണ് സ്വർണം